സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ്ട് പ്ലൂദേശങ്ങളും നടത്തിവരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്ത്ന്ങൾ കേന്ദ്ര മന്ത്രിതല സമിതി വിലയിരുത്തി

കേരളത്തിൽ ഇന്ന് ഏഴ് പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഴ് പേർ രോഗമുക്തി നേടി

സംസ്ഥാനങ്ങളിലെ കൊവിഡ് പ്രതിരോധം വിലയിരുത്താൻ അന്തർസംസ്ഥാന മന്ത്രിതല സമിതിക്ക് രൂപം നൽകി

മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽപേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ക്ടെയിൽ മരണസംഖ്യ ഇരുപതിനായിര ത്തോടടുക്കുന്നു

വോയിസ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകിയതായി മന്ത്രിതല സംഘം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു

രോഗനിർണയം സംബന്ധിച്ചും ആവശ്യമായ പരിശോധനാ കിറ്റുകളുടെ ലഭ്യതയും യോഗത്തിൽ വിലയിരുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ ചില ജില്ലകളിൽ ലോക്ക് ഡൌൺ നിയമ ലംഘനം സംബന്ധിച്ച് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതു കൂടി കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ പൂത്പൂർുമാനം

കേന്ദ്രസർക്കാർ രൂപീകരിച്ച അന്തർ സംസ്ക്യിട്ടുന്ന് മന്ത്രിതല സമിതിയിൽ രണ്ടെണ്ണം ഗുജറാത്തിലേക്കും തെലിങ്കാൾ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങ ളിലേക്കുമാണ് നിയോഗിക്കുക

ഐ വി ആർ എസ് വഴിയോ രജിസ്റ്റേർഡ് മൊബൈൽ ഫോൺ വഴിയോ മാത്രമാണ് റിഫിൽ ബുക്കിങ് നടത്തേണ്ടത്

ഇൌ കാലയളവിൽ ബാങ്കിംഗ് ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നതിനും വിലക്കുണ്ട്

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും

കോവിഡ് അവലോകന യോഗത്തിനുശേഷം തിരുഷ്നന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കൊല്ലത്തും കോട്ടയത്തും മൂന്ന് പേർക്ക് വീതവും കണ്ണൂരിൽ ഒരാൾക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്

കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് എന്നിവിടങ്ങളിൽ രണ്ട് പേർ വീതവും വയനാട്ടിൽ ഒരാളുമാണ് രോഗമുക്തി നേടിയത്

വോകിസ്സ് രോഗ വ്യാപനത്തെ സംബന്ധിച്ച ്രവിവ്മശേഖരണം അവബോധം നൽകൽ രോഗ വ്യാപന സാധ്യതയുള്ള പ്പീഭാഗ്ഗങ്ങളെ കണ്ടെത്തുക രോഗബാധിതരുടെ നിരീക്ഷണം ലോക്ഡൌൺ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തൽ തുടങ്ങിയവ്യൂർണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്ട് ലോക്ഡൌൺ കാലത്ത് ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നടത്തുന്ന സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റി അടുക്കളകളുടെ ചുമതലയും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നിരാലംബർ കുടിയേറ്റ തൊഴിലാളികൾ മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ സംരക്ഷണത്തിലും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു നല്ല ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എറണാകുളം ജില്ലയിലെ വടക്കേക്കര പോലുള്ള പഞ്ചായത്തുകൾ വീടുകളിലെ പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയപ്പോൾ സാമൂഹിക അകലം ഉറപ്പാക്കാൻ കുടകൾ ഉപയോഗിക്കാമെന്ന പുതിയ ആശയവുമായി ആലപ്പുഴയിലെ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി